സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ശനിയാഴ്ച

രാജ്യത്തുണ്ടെന്ന് കേന്ദ്ര സർക്കാർ

ചാരക്കേസ് ഗൂഢാലോചന സി ബി ഐ

അന്വേഷിക്കും

ഐ

ക്യാപ്പിറ്റൽസിനെ നേരിടും മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം

നാല് ദിവസത്തെ വാക്സിനേഷൻ യജ്ഞത്തിലൂടെ വാക്സിൻ എടുത്തവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കാനും പുതിയ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാനും കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു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

സാമൂഹ്യ സംഘടനകുളു്പ് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിതര സംഘടനകളും സ്ക്ഥാപനങ്ങളും ഒത്തുചേർന്ന് കോവിഡിനെതിരെ പോരാട്ടം ക്യൂട്ര്ണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

ഈ സാഹചരൃത്തിൽ രോഗമുക്തി നിരക്ക് കുറയുന്നു

ആദ്യമായാണ് ഒരു ദിവസം രണ്ട് ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഇന്നലെ ആയിരത്തിലധികം കോവിഡ് രോഗികൾ ഉണ്ടായി

ഇത് പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്നതാണ്

സമ്പർക്കത്തിലൂടെയാണ് ഇന്നലെ രോഗബാധിതരായവർക്കെല്ലാം കോവിഡ് ബാധിച്ചത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു

സംസ്ഥാനത്ത് പ്രതിരോധ കുത്തിവയ്പ്പ് ക്കേന്ദ്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായും കൂടുതൽ ജനങ്ങൾ കുത്തിവയ്പ്പ് സ്വീകരിക്കാൻ മുന്നോട്ടുവന്നതായും റിപ്പോർട്ടിൽ പറയുന്നു

മണ്ഡലങ്ങളിലാണ് ഈ ഘ്ട്ടത്തീൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

കോവിഡ് സാഹചര്യത്തിൽ മാസ്ക് ധരിച്ച് വേണം പോളിംഗ് ബൂത്തുകളിലെത്താനെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്

സാനിറ്റൈസറും നൽകും ശരീരോഷ്മാവ് കൂടുതലുള്ള വോട്ടർമാർക്ക് അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാനായി ടോക്കൺ നൽകും പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ ബി ജെ

ദേശീയ അധ്യക്ഷൻ ജെ

കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ബർദമാനിൽ റോഡ് ഷോ നടത്തി ജൽപായ്ഗുരിയിൽ മുഖ്യമന്ത്രി മമത ബാനർജി മൂന്ന് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഡാർജിലിംഗിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംബന്ധിച്ചു

പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും

ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ട് മുഖ്യപ്രതിപക്ഷമായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് കോൺഗ്രസ് കക്ഷികൾ തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ശനിയാഴ്ചയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്

രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിക്കും

ആർ

മൂന്ന് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും സുപ്രീംകോടതി സിബിഐ യ്ക്ക് നിർദ്ദേശം നൽകി ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ ഐ

ഒ ചാരക്കേസിൽ കുടുക്കിയ്ക്ക് ആരെന്ന അന്വേഷണ റിപ്പോർട്ട് ഇന്ന് പരിഗണിക്കവെയാണ് സ്ക്രിപ്രീം കോടതി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്

കെ ജെയിൻ സമിതിയുടെ റിപ്പോർട്ടാണ് ജസ്റ്റിസ് എ

ഇത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ട് പരസൃപ്പെടുത്താനുള്ളതല്ലെന്ന് പറഞ്ഞ കോടതി പകർപ്പ് വേണ്മെന്ന നമ്പി നാരായണന്റെ ആവശ്യവും അംഗീകരിച്ചില്ല